കാലാതീത ഇതിഹാസമായരാമായണത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന ധർമ്മത്തിന്റെയും നീതിയുടെയും സാർവ്വലൌക്ടികമായ സന്ദേശം മനസിലാക്കാനും പ്രചരിപ്പിക്കാ്നും ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു ആഷ്ടാനം ചെയ്തു

ഒറ്റ ദിവസം കൊണ്ട് ഇത്രയധികം പേർ രോഗമുക്തിനേടുന്നത് ഇതാദൃം

ബീഹാറിലെ വെള്ളപ്പൊക്കം രൂക്ഷം

തെക്ക് കിഴക്കൻ ഏഷ്യയിലെ മിക്ക രാജ്യങ്ങളുടെയും സംസ്കാരത്തിൽ പ്രകടവും ആഴത്തിലുള്ളതുമായ സ്വാധീനം ചെലുത്തുന്ന തരത്തിലുള്ള സാർവ്വലൌകികമായ ഒരു ദർശനമാണ് രാമായണം ഉൾക്കൊള്ളുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു

രാജ്യത്തിന്റെ അഭിമാനത്തിന്റെയും വിജയത്തിന്റെയും പ്രതീകമായ ദേശീയ പതാകയുടെ രൂപകല്പനയ്ക്ക് രാഷ്ട്രം മുഴുവൻ പിംഗലി വെങ്കയ്യോട് കടപ്പെട്ടിരിക്കുന്നതായി ഉപരാഷ്ട്രപതി ട്വീറ്റ് ചെയ്തു

കോവിഡ് മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം ആദ്യമായിട്ടാണ് ഒറ്റ ദിവസത്തിൽ ഇത്രയേറെ പേർ രോഗ്മൂക്തി നേടുന്നത് കൂടുതൽ വിവരങ്ങളുമായി ജോസ്ന

ഡോക്ടർമാരുടെ ഉപദേശപ്രകാരം ആശുപത്രിയിൽ ചികിത്സ തേടുകയാണെന്നും അദ്ദേഹം വൃക്തമാക്കിയിട്ടുണ്ട്

നിര്യാണത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പ്രധാന മന്ത്രി നരേന്ദ്ര മോദി പ്രതിരോധമന്ത്രി രാജ്നാഥ് സിങ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി

രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള തൊഴിൽരഹിതർക്കും കുടിയേറ്റ തൊഴിലാളികൾക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഖാദി അഗർബത്തി ആത്മ നിർഭർ മിഷൻ എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതി നടപ്പാക്കുന്നത്

ഉപവാസം ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി പി

ജെ

സ്വർണ്ണക്കടത്ത് കേസ് സംബന്ധിച്ച എല്ലാ വിവരങ്ങളും അന്വേഷണ ഏജൻസികൾ പുറത്തു കൊണ്ടുവരുമെന്ന് കേന്ദ്ര മന്ത്രി പറഞ്ഞു ഉപവാസത്തോടനുബന്ധിച്ച് കൊല്ലം ജില്ലയിൽ വിർചൽ റാലിയും സംഘടിപ്പിച്ചു

ബി ഐ അന്വേഷണവും ആവശ്യപ്പെട്ടുള്ള യു

എഫ് ന്റെ സ്പീക്ക് അപ് കേരള സത്യാഗ്രഹം നാളെ രാവിലെ ഒമ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ യു

എഫ് നേതാക്കൾ വീടുകളിലും ഓഫീസുകളിലും സത്യാഗ്രഹം അനുഷ്ഠിക്കും

ഗോപാൽഗഞ്ച് മധുബാനി സീതാമർഹിച്ച പ്രശ്ചിമ ചമ്പാരൻ എന്നിവിടങ്ങളിലും സ്ഥിതി രൂക്ഷമായി തുട്രുന്നു

ബ്ഗ്ഗാൾ ഉൾക്കടലിൽ ചൊവ്വാഴ്ചയോടെ ന്യൂനമർദ്ദം ശക്തി പ്രാപ്പിച്ച് കേരളത്തിൽ ശക്തമായ മഴ പെയ്യാനിടയാക്കുമെന്ന് ്കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു

സ്നേഹം ഐക്യം സാഹോദര്യം ദേശസ്നേഹം എന്നിവയുടെ സന്ദേശവുമായി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ജമ്മു കശ്മീരിലും ലഡാക്കിലും സേവനമനുഷ്ഠിക്കുന്ന ജവാൻമാരുടെ കൈകളിൽ അവിടങ്ങളിലെ വനിതകൾ രാഖി ബന്ധിച്ചു രക്ഷാ ബന്ധന്റെ ശുഭദിനത്തിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്വാശ്രയ സംഘങ്ങൾ ജമ്മു കശ്മീർ ലഡാക്ക് എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന ജവാൻമാർക്ക് രാഖികൾ ത്രി വർണ്ണ ബാൻഡുകൾ മുഖാവരണങ്ങൾ എന്നിവ അയച്ചു